കേരളത്തിൽ ഇന്നും ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യത

മറ്റ് പത്ത് ജില്ലകളിൽ നിലവിലെ ലോക്ഡൌൺ തുടരും

ടി എമ്മുകൾ ജീവൻരക്ഷാ ഉപകരണങ്ങൾ വിൽക്കുന്ന കടകൾ ആശുപത്രികൾ ക്ലിനിക്കുകൾ തുടങ്ങിയവ എല്ലാ ദിവസവും പ്രവർത്തിക്കും ബാങ്കുകളും ധനകാര്യ സ്ഥാപനങ്ങളും തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിലും സഹകരണ ബാങ്കുകൾ തിങ്കൾ വ്യാഴം ദിവസങ്ങളിലും കുറഞ്ഞ സ്റ്റാഫിനെ വെച്ച് ഒരു മണിവരെ പ്രവർത്തിക്കും

തിരുവനന്തപുരം ജില്ലയിൽ അവശ്യ സാധനങ്ങൾ വിൽക്കുന്ന കടകൾ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് രണ്ടുവരെ മാത്രമായിരിക്കും തുറക്കാൻ അനുവദിക്കുക എറണാകുളം ജില്ലയിൽ പലചരക്ക് കടകൾ ബേക്കറി പഴം പച്ചക്കറി മത്സ്യ മാംസ വിതരണ കടകൾ ചൊവ്വ വ്യാഴം ശനി ദിവസങ്ങളിൽ രാവിലെ എട്ട് മുതൽ ഉച്ചയ്ക്ക് രണ്ടുവരെ പ്രവർത്തിക്കാം അവശ്യ സാധനങ്ങൾ വാങ്ങുന്നതിന് ദൂരയാത്രയും വഴിയോര കച്ചവടങ്ങളും അനുവദിക്കില്ല

മലപ്പുറം ജില്ലയിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ റേഷൻകാർഡ് നമ്പറിന്റെ അവസാന അക്കം ഒറ്റയിൽവരുന്ന കാർഡുടമകൾക്കും ചൊവ്വ വ്യാഴം ശനി ദിവസങ്ങളിൽ അവസാന അക്കം ഇരട്ടയിൽ വരുന്നവർക്കും അവശ്യവസ്തുക്കൾ വാങ്ങാൻ യാത്രചെയ്യാം

ദേദ ലോക്ഡൌണും ട്രിപ്പിൾ ലോക്ഡൌണും നിലവിലുള്ള ജില്ലകളിൽ ഡോക്ടർമാർ നഴ്സുമാർ സാനിറ്റേഷൻ ജോലിക്കാർ എന്നിവരുടെ യാത്ര തടസ്സപ്പെടുത്തരുതെന്ന് സംസ്ഥാന പൊലീസ് മേധാവി ലോക്നാഥ് ബെഹ്റ ജില്ലാ പൊലീസ് മേധാവിമാർക്ക് നിർദ്ദേശം നൽകി ഈ വിഭാഗത്തിൽപ്പെട്ടവർ തിരിച്ചറിയൽ കാർഡ് പരിശോധനയ്ക്ക് ഹാജരാക്കണമെന്നും ഡി

ദ്ദേ ട്രിപ്പിൾ ലോക്ഡൌൺ ഏർപ്പെടുത്തിയ ജില്ലകളിൽ ക്ഷീര മേഖലയെ നിയന്ത്രണങ്ങളിൽ നിന്ന് ഒഴിവാക്കണമെന്ന് മിൽമ ചെയർമാൻ പി എ ബാലൻ മുഖ്യമന്ത്രിയോടും ചീഫ് സെക്രട്ടറിയോടും ആവശ്യപ്പെട്ടു

ദേദ കോവിഡ് രോഗവ്യാപനം നിയന്ത്രിക്കുന്നതിനായി അട്ടപ്പാടിയിലെ ഊരുകളിലേക്ക് പ്രവേശനം കൂടുതൽ കർശനമാക്കി ഊരുകളിലേക്ക് ആവശ്യമായ ഭക്ഷ്യവസ്തുക്കൾ മരുന്നുകൾ മറ്റ് അവശ്യസാധനങ്ങൾ എന്നിവ ദ്രുതകർമ്മ സേനയുടെ നേതൃത്വത്തിൽ എത്തിക്കും

ഒ യുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ന്യൂക്ലിയർ മെഡിസിൻ ആൻഡ് അലൈഡ് സയൻസസ് ഡോ

കോവിഡ് രോഗികളുടെ ആശുപത്രി വാസം കുറയ്ക്കുന്നതിനും ഓക്സിജൻ ആശ്രിതത്വം കുറയ്ക്കുന്നതിനും മരുന്ന് ഫലപ്രദമാണെന്നാണു കണ്ടെത്തൽ പൊടി രൂപത്തിൽ ലഭ്യമാകുന്ന മരുന്ന് വെള്ളത്തിൽ ലയിപ്പിച്ച് കഴിക്കാം

ഈ പ്രായത്തിൽപ്പെട്ട അനുബന്ധ രോഗമുള്ളവരെയാണ് ആദ്യ മുൻഗണനാ പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കൂടുതൽ വിവരങ്ങളുമായി അനുഷ ആത്മപ്രകാശ്

ഇതിൽ നാല്പതിനായിരത്തോളം പേരാണ് രേഖകൾ അപ്ലോഡ് ചെയ്തതെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു ഇവരിൽ അനുബന്ധ രോഗത്തിന് രേഖകൾ അപ്ലോഡ് ചെയ്തവർക്കാണ് മുൻഗണന

ന്യൂസ് ഡസ്ക് ആകാശവാണി ദ്ദേ മടക്കയാത്രക്ക് ഒരുങ്ങുന്ന പ്രവാസികൾക്ക് വാക്സിനേഷനിൽ മുൻഗണന നൽകണമെന്നും പ്രവാസികൾക്ക് മാത്രമായി പ്രത്യേക രജിസ്ട്രേഷൻ സംവിധാനം ഒരുക്കണമെന്നും എം കെ രാഘവൻ എം പി മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടു

മറ്റു ജില്ലകളിൽ ഇതിൽ താഴെയാണ് രോഗികൾ

ചുഴലിക്കാറ്റ് വടക്ക് പടിഞ്ഞാറ് ദിശയിൽ സഞ്ചരിച്ച് ഇന്ന് വൈകുന്നേരത്തോടുകൂടി ഗുജറാത്ത് തീരത്തെത്തും

ദ്ദേ കേന്ദ്ര ക്യാബിനറ്റ് സെക്രട്ടറി രാജിവ് ഗൌബേയുടെ അധ്യക്ഷതയിൽ ദേശീയ ക്രൈസിസ് മാനേജ്മെന്റ് സമിതി ന്യൂഡൽഹിയിൽ യോഗം ചേർന്ന് ടൌട്ടെ ചുഴലിക്കാറ്റിനെ നേരിടുന്നതിന് കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളും ഏജൻസികളും നടത്തിയ തയ്യാറെടുപ്പുകൾ അവലോകനം ചെയ്തു ദേദ ചുഴലിക്കാറ്റിന്റെ സ്വാധീനം കേരള തീരത്ത് ഇന്നും തുടരുമെന്നതിനാൽ അതിതീവ്രമോ ശക്തമോ ആയ മഴയ്ക്കും കാറ്റിനും സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു

കടലാക്രമണം ശക്തമായ ഇടിമിന്നൽ തുടങ്ങിയ അപകട സാധ്യതകൾ സംബന്ധിച്ച് ജാഗ്രത പാലിക്കണം ഇനിയൊരറിയിപ്പ് ഉണ്ടാകുന്നതുവരെ കേരള തീരത്ത് കടലിൽ പോകുന്നതിന് ദുരന്ത നിവാരണ അതോറിറ്റി പൂർണ്ണ വിലക്ക് ഏർപ്പെടുത്തി

ദേദ കോഴിക്കോട് ജില്ലയിൽ ഇന്നലെ മഴക്കെടുതിയിൽ ഒരാൾ മരിച്ചു അരിക്കുളം ഊരള്ളൂർ ചേമ്പുംക്കണ്ടി മീത്തൽ യശോദയാണ് തെങ്ങുവീണ് മരിച്ചത് കനത്ത മഴയെ തുടർന്ന് കോഴിക്കോട്കൊയിലാണ്ടി വടകര താമരശ്ശേരി താലൂക്കുകളിലായി നിരവധി ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു വീടുകൾ ഭാഗികമായോ പൂർണമായോ തകർന്ന നിരവധി കുടുംബങ്ങളെ ക്യാമ്പുകളിലേക്ക് മാറ്റിപാർപ്പിച്ചിട്ടുണ്ട്

പൊന്നാനി ലൈറ്റ്ഹൌസ് മുതൽ ജില്ലാ അതിർത്തിയായ കാപ്പിരിക്കാട് വരെ ഭാഗങ്ങളിലാണ് നാശംവിതച്ചത്

താനൂരിൽ കടൽഭിത്തി ഇല്ലാത്ത എടക്കടപ്പുറം ചീരാൻകടപ്പുറം അഞ്ചുടി പുതിയകടപ്പുറം ഭാഗങ്ങളിലാണ് കടലാക്രമണം എടക്കടപ്പുറം ഭാഗത്ത് മുപ്പതിലധികം വീടുകളിൽ വെള്ളം കയറി ചാലിയാറിലും ജലനിരപ്പുയർന്നു ഓടായിക്കൽ റഗുലേറ്റർ കം ബ്രിഡ്ജിന്റെ ഷട്ടറുകൾ തുറന്നു മമ്പാട് എടവണ്ണ അരീക്കോട് ഭാഗങ്ങളിലെ തീരവാസികളോടും മറ്റും ജാഗ്രത പുലർത്താനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് കടലുണ്ടി പുഴയിലും ജലനിരപ്പ് ഉയർന്നു ഉരുൾപൊട്ടൽ ഭീഷണി നിലനിൽക്കുന്നതിനാൽ പെരിന്തൽമണ്ണ വെട്ടത്തൂർ പഞ്ചായത്തിലെ മണ്ണാർമലയിലെ ആറംഗ ആദിവാസി കുടുംബത്തെ മണ്ണാർമല യു പി സ്കൂൾ ക്യാമ്പിലേക്ക് മാറ്റി ദേദ ശക്തമായ കാറ്റിലും മഴയിലും കടലാക്രമണത്തിലും നാശനഷ്ടങ്ങളുണ്ടായവർക്ക് നിയമാനുസൃത ധനസഹായം നൽകുന്നതിനടക്കം നടപടി സ്വീകരിക്കുമെന്ന് കൊല്ലം ജില്ലാ കലക്ടർ ബി അബ്ദുൽ നാസർ അറിയിച്ചു പ്രകൃതിക്ഷോഭ സാഹചര്യം അവലോകനം ചെയ്യാൻ ജില്ലയിലെ ജനപ്രതിനിധികൾ പങ്കെടുത്ത ഓൺലൈൻ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ദേദ മീനച്ചിലാറ്റിലും കൊടൂരാറ്റിലും ജലനിരപ്പ് ഗണ്യമായി ഉയർന്നതിനെത്തുടർന്ന് കോട്ടയം താലൂക്കിൽ തീരപ്രദേശങ്ങളിൽ താമസിക്കുന്നവർക്ക് കോട്ടയം ജില്ലാ ദുരന്തനിവാരണ അതോറിറ്റി ജാഗ്രതാ നിർദേശം നൽകി

ദര കനത്ത മഴയിൽ കോഴിക്കോട് നിർമാണത്തിലിരിക്കുന്ന പെരിഞ്ചേരിക്കടവ് റെഗുലേറ്റർ കം ബ്രിഡ്ജിന്റെ ചെറുവണ്ണൂർ ഭാഗത്തെ ബണ്ട് തകർന്നു ഗുളിക പുഴയുടെ തീരത്തു താമസിക്കുന്നവരെ മാറ്റിപ്പാർപ്പിക്കാൻ നടപടി ആരംഭിച്ചു

ദര ഇടുക്കി ജില്ലയിൽ രണ്ട് ദിവസമായി തുടരുന്ന മഴയിൽ വ്യാപക നാശനഷ്ടം

എഫ് നേതൃയോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരും ഘടകകക്ഷികളുടെ മന്ത്രിസഭാ പ്രാതിനിധ്യം സംബന്ധിച്ച് യോഗത്തിൽ തീരുമാനമെടുത്തേക്കും ദേദ എറണാകുളത്ത് നിന്ന് വെള്ളിയാഴ്ച പുറപ്പെട്ട ഓഖ ദ്വൈവാര പ്രത്യേക ട്രെയിൻ ചുഴലിക്കാറ്റ് കണക്കിലെടുത്ത് അഹമ്മദാബാദിൽ യാത്ര അവസാനിപ്പിച്ചതായി റെയിൽവെ അറിയിച്ചു